കോവിഡ് സാഹചര്യത്തിൽ കർശന മാനദണ്ഡങ്ങളോടെയാണ് നിർണായക തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുന്നതിന് ജനങ്ങൾ ബൂത്തിലെത്തുക

വൈകീട്ട് ആറുമുതൽ ഏഴുവരെ കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും വോട്ട് രേഖപ്പെടുത്താം ഈ സമയത്ത് ക്യൂവിൽ നിൽക്കുന്ന മറ്റ് വോട്ടർമാർ വോട്ട് ചെയ്ത ശേഷമായിരിക്കും ഇവർക്ക് അവസരം നൽകുക

മാനന്തവാടി സുൽത്താൻ ബത്തേരി കല്പറ്റ ഏറനാട് നിലമ്പൂർ വണ്ടൂർ കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിലാണ് ഒരു മണിക്കൂർ മുമ്പ് വോട്ടെടുപ്പ് അവസാനിക്കുക

ഇതിൽ അഞ്ചുലക്ഷത്തിൽപ്പരം കന്നിവോട്ടർമാരാണ്

ഇരട്ട വോട്ടുകളും കള്ളവോട്ടുകളും തടയുന്നതിന് കർശന നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട്

ഇരട്ട വോട്ടുള്ളവരുടെ പേര് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൈമാറി

മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്

ന്യൂസ് ഡസ്ക് ആകാശവാണി ദ്ദേ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പുതന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ എത്തിത്തുടങ്ങിയതായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്തു

വിശദാംശങ്ങളുമായി നിമിഷ അരുൺ ദേദ മാസ്ക് സാനിറ്റൈസർ കയ്യുറകൾ എന്നിവയും സാമൂഹിക അകലം പാലിക്കലും നിർബന്ധമാക്കി

പോളിംഗ് ബൂത്തുകളിൽ തെർമൽ സ്കാനറും പി പി ഇ കിറ്റുകളും ബ്രേക്ക് ദി ചെയിൻ കിറ്റുകളും ഉണ്ട്

ജീവനക്കാർക്കും വോട്ടർമാർക്കും ആവശ്യാനുസരണം പ്ലാസ്റ്റിക് ഗ്ലൌസുകൾ ഫേസ് ഷീൽഡ് സാനിറ്റൈസർ എന്നിവ ലഭ്യമാക്കി പോളിംഗ് ബൂത്തിന് പുറത്ത് വെള്ളം സോപ്പ് എന്നിവയും ബൂത്തിനകത്ത് സാനിറ്റൈസറും സജ്ജീകരിച്ചു വോട്ടർമാരുടെ ശരീരോഷ്മാവ് പരിശോധിക്കും പ്രായമായവർ ഭിന്നശേഷിക്കാർ രോഗികൾ എന്നിവർക്ക് ക്യൂ ഇല്ലാതെ വോട്ട് ചെയ്യാം

ന്യൂസ്ഡസ്ക് ആകാശവാണി

കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്റർനാഷണൽ വെർച്വൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി തത്സമയ അവതരണത്തിൽ കേരളത്തിൽനിന്ന് കോട്ടയം ജില്ല മാത്രമാണുള്ളത്

ദേദ വയനാട് ജില്ലയിലെ എല്ലാ ആദിവാസി കോളനികളിലും ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തി

തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയിലെ നാല് ചെക്പോസ്റ്റുകളിലും അതിർത്തി മേഖലകളിലും കേന്ദ്രസേന ഉൾപ്പെടെ പരിശോധനകളുമായി രംഗത്തുണ്ട് ദേദ കേരളത്തോടൊപ്പം തമിഴ്നാടും പുതുച്ചേരിയും ഇന്ന് വിധിയെഴുതും അസമിലും പശ്ചിമ ബംഗാളിലും മൂന്നാംഘട്ട വോട്ടെടുപ്പും ഇന്നാണ്

കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും

ദര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വോട്ടർ സ്ലിപ്പ് മാത്രം മതിയാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

ദേദ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് നിരക്ക് ഉയർന്നുനിൽക്കുന്ന സാഹചര്യത്തിൽ വോട്ടർമാർ ജാഗ്രത കൈവിടാതെ പോളിങ് ബൂത്തിലെത്തണമെന്ന് അധികൃതർ നിർദേശിച്ചു ദേദ കോവിഡുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ ഉചിതമായ പെരുമാറ്റരീതി രൂപീകരിക്കുന്നതിനായി രാജ്യത്ത് പ്രത്യേക കാമ്പയിൻ ഇന്ന് ആരംഭിക്കും നൂറു ശതമാനമാനം മാസ്ക് ഉപയോഗം വ്യക്തി ശുചിത്വം വ്യക്തിഗത ശുചിത്വം പൊതു സ്ഥലങ്ങളിലേയും തൊഴിലിടങ്ങളിലെയും ശുചിത്വം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് കാമ്പയിൻ സംഘടിപ്പിക്കുന്നത്

എല്ലാ ജില്ലകളിലും നാനൂറിൽ താഴെയാണ് രോഗികൾ

ദേദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാത്രി ഏഴിന് രാജ്യത്തെ വിദ്യാർത്ഥികളുമായി പരീക്ഷാ പേ ചർച്ചയിലൂടെ ആശയവിനിമയം നടത്തും